റെയിൽവേ

എസ് എൽ ഫുട്ബോളിൽ ബംഗളുരുവിനെതിരെ മുംബൈ സിറ്റിയ്ക്ക് ജയം

കേന്ദ്ര ആരോഗൃ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ കീഴിലുള്ള സ്വതന്ത്ര സംഘടനയായ സെൻട്രൽ മെഡിക്കൽ സപ്ലൈ സ്റ്റോറിനാണ് പദ്ധതി നിർവഹണ ചുമതല്ല

അടുത്ത ഏഴ് വർഷത്തേക്ക് സമ്യക്ക് പ്പാർഷിക അറ്റകുറ്റപ്പണിയ്ക്ക് കരാർ നൽകിയിട്ടുണ്ട് തുടർന്നുള്ള് വർഷങ്ങളിൽ ഇതിന്റെ ചെലവ് അതത് സംസ്ഥാനങ്ങൾ നിർദ്ദുഹിക്കും പൊതുജനാരോഗൃ കേന്ദ്രങ്ങളിലെ രോഗികൾക്ക് കൃത്യസമയത്ത് ഓക്സിജൻ ലഭൃമാക്കുന്നതിന് സ്വന്ത്മായി ഓക്സിജൻ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റുകൾ ഉപകാരപ്രദമാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഊർജമേഖലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ അതിവേഗം വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെയും കർണ്ണാടകയുടെയും ഭാവി വികസനത്തിൽ കൊച്ചി മംഗലുരു ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി നിർണായകമായി മാറും പദ്ധതി യഥാർത്ഥ്യമാക്കാനുള്ള പ്രതിബന്ധങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി മറികടന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

യാത്രാക്കൂലി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ പരിഗണനയിലില്ലെന്നും റെയിൽവേ വൃക്തമാക്കി അടിസ്ഥാന രഹിതമായ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും പിൻതിരിയണമെന്നും റെയിൽവേ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു

റെയിൽവേയുമായുള്ള വ്യാപ്പ്ാര് സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതവത്കരിക്കുന്ന്തിന് പുതിയ പോർട്ടൽ സഹായിക്കുമെന്ന് കേന്ദ്രിമ്പ്ര്തി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

മനുഷ്യ മാലിനൃ സംസ്ക്കരണത്തിനുള്ള തദ്ദേശീയവും ചെലവു കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യയാണ് ഡി

മഹാരാഷ്ട്രയിലെ മെട്രോ റെയിൽ ശൃംഖലയിലുടനീളം ഈ സാങ്കേതിക വിദ്യ നടപ്പാക്കാനുള്ള എല്ലാ സാങ്കേതിക പിന്തുണയും ഡി

സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പരിശീലനത്തിനിടെ വിമാനം രാജസ്ഥാനിലെ സൂറത്ഗഡിനു സമീപം ഇന്നലെ തകർന്ന് വീണത് സംഭവത്തിൽ വ്യോമസേന ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു

ഈ വർഷത്തെ അമർനാഥ് യാത്രയുടെ മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള അവലോകന യോഗത്തിൽ അധൃക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം തീർത്ഥാടകർക്ക് മികച്ച വൈദ്യ സഹായം നൽകുന്നതിന് മുൻഗണന നൽകുമെന്ന് അറിയിച്ച ശ്രീ

പ്രധാനമന്ത്രി ന്രേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു സമീപഭാവിയിൽ തന്നെ ഇൻഡ്യ സന്ദർശിക്കണമെന്നാണ് ആഗ്രഹമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ബ്രിട്ടനിലെ സാഹചര്യം മനസിലാക്കുന്നതായും എത്രയും വേഗം സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാകട്ടെ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു ബോറിസ് ജോൺസന്റെ ഇൻഡ്യാ സന്ദർശനം എത്രയും വേഗം സാധൃമാകട്ടെയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് വാക്സിൻ ലോകത്തിന് ലഭ്യമാക്കുന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങളിലുള്ള പരസ്പര സഹകരണം ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി ബാധിച്ച പ്രദേശങ്ങളിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നു നശിപ്പിക്കുന്ന നടപടികൾ തുടങ്ങി

പക്ഷിപ്പനി മൂലം നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു

കോവിഡിനെ തുടർന്നുള്ള സ്ഥിതിഗതി മെച്ചപ്പെട്ടതിനാലാണ് ഷിംല കാംഗ്ര മണ്ഡി കുളു എന്നീ ജില്ലകളിലെ രാത്രികാല കർഫ്യൂ സംസ്ഥാന സർക്കാർ പിൻവലിച്ചത് സർക്കാർ ഓഫീസുകൾ ഇനി സാധാരണ ഗതിയിൽ ആഴ്ചയിൽ ആറു ദിവസവും പ്രവർത്തനം പുനരാരംഭിക്കും

തെരഞ്ഞെടുപ്പ് പരിശീലന പ്രവർത്തനങ്ങൾ സുഗമമാകുന്നതിന് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതു സംബന്ധിച്ച നിബന്ധനകളിലും സംസ്ഥാന മന്ത്രിസഭ ഇളവു നൽകി

ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് കൂടുതൽ പകരാൻ സാധൃതയുള്ളതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം വേണ്ടി വന്നതെന്ന് അടച്ചുപൂട്ടൽ സംബന്ധിച്ച പുതുക്കിയ ചട്ടങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ജർമ്മൻ ചാൻസലർ എയ്ഞ്ചല മെർക്കൽ വൃക്തമാക്കി

എൽ ഫുട്ബോളിൽ കഴിഞ്ഞ രാത്രി നടന്ന മത്സരത്തിൽ ബംഗളുരു എഫ് സിയെ മുംബൈ സിറ്റി എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ള ബംഗളുരു എഫ് സി യുടെ തുടർച്ചയായ മൂന്നാം തോൽവിയായിരുന്നു ഇത്

പുലർച്ചെ അഞ്ചിന് സിഡ്നിയിലാണ് മത്സരം രോഹിത് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മെൽബണിലെ എട്ട് വിക്കറ്റ് ജയത്തിന്റെ ആവേശത്തിലിറങ്ങുന്ന അജിൻക്യ രഹാനെയുടെ ഇന്ത്യൻ സംഘം ആത്മവിശ്വാസത്തിലാണ്